ലോകത്ത് ഏറ്റവും വലിയ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞത്തിന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നാളെ തുടക്കം കുറിക്കും

ക്ഷേമ പെൻഷനുകളിൽ വർധന കാർഷികോല്പന്നങ്ങളുടെ സംഭരണ വില ഉയർത്തും കെ ഫോൺ പദ്ധതിയുടെ ആദ്യ ഘട്ടം ഫെബ്രുവരിയിൽ പൂർത്തിയാക്കുമെന്നും ബജറ്റ് പ്രപഖ്യാപനം

കോവിഡാനന്തര കേരളത്തിന്റെ രൂപരേഖയാകും ബജറ്റെന്ന് ധനമന്ത്രി അറിയിച്ചു

വരുന്ന ഏപ്രിൽ മാസം മുതൽ ഈ തുക നൽകിത്തുടങ്ങുമെന്നും ധനമന്ത്രി അറിയിച്ചു

ജൂലൈയോടെ പദ്ധതി പൂർത്തീകരിച്ച് വീടുകളിലും സ്ഥാപനങ്ങളിലും ഇന്റർനെറ്റ് എത്തിക്കും കെ ഫോൺ പദ്ധതിയിൽ ബി

എൽ

പട്ടിക ജാതി പട്ടിക വർഗ വിഭാഗങ്ങൾ മത്സ്യ തൊഴിലാളികൾ അന്ത്യോദയ വീടുകൾ എന്നിവിടങ്ങളിലെ കുട്ടികൾക്ക് പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് നൽകും

പ്രവാസി ക്ഷേമനിധിക്ക് ട്ട് കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്

തുറന്ന മനസ്സോടെയുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിങ്ങ് തോമർ പറഞ്ഞു കാർഷിക നിയമങ്ങൾ നടപ്പാക്കുന്നത് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തിരുന്നു